എം വിവാഹേതര ലൈംഗികബന്ധം കുറ്റകരമാക്കുന്ന

സി പ്രസിഡണ്ടായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചുമതലയേറ്റു

എം നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും

അഞ്ചംഗ ഭരണഘടനാബെഞ്ചിലെ ജഡ്ജിമാർ ഏകകണ്ഠമായാണ് വിധി പ്രഖ്യാപിച്ചത്

എന്നാൽ വിവാഹമോചന ത്തിന് സിവിൽ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽവിവാഹേതര ലൈംഗിക ബന്ധത്തെ ഒരു കാരണമായി പരിഗണിക്കും ഇതിന്റെ പേരിൽ ഭാര്യയെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ആത്മഹത്യാ പ്രേരണാകുറ്റമായും കാണും

സ്ത്രീ യ്ക്കും പുരുഷനും ലൈംഗികത ഉൾപ്പടെ എല്ലാരംഗത്തും തുല്യ അവകാശ അധികാരങ്ങളുണ്ട് ഭാര്യയുടെ യജമാനനല്ല ഭർത്താവെന്നും വിധിന്യായത്തിൽ പറയുന്നു സമൂഹത്തിന്റെ താൽപ്പര്യത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് വ്യക്തികളെ നിർബന്ധിക്കുന്നത് വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് രണ്ട് വ്യക്തികൾക്കിടയിലെ ബന്ധം ഏത് തരത്തിലാണ് സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാകുന്നതെന്ന് വിചാരണാ വേളയിൽ സുപ്രീംകോടതി ചോദിച്ചു

പരിഷ്കൃത രാജ്യങ്ങളിലും സമൂഹങ്ങളിലും ഇത്തരം ബന്ധങ്ങൾ ക്രിമിനൽകുറ്റമായി പരിഗണിക്കാത്ത സാഹചര്യത്തിൽ രാജ്യത്തും ആ കാഴ്ചപ്പാട് പുലർത്തുന്നതിനെ ഭരണഘടനാബെഞ്ച് അനുകൂലിച്ചു പ്രവാസി മലയാളിയായ ജോസഫ് ഷൈൻ നൽകിയ പൊതുതാൽപ്പര്യഹർജിയിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനവിധി

ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി കൊച്ചിയിൽ ബി

പി സംസ്ഥാന കൌൺസിൽ യോഗത്തിന്റെ ഭാഗമായി പാർട്ടി നേതാക്കൾ പങ്കെടുക്കുന്ന സമ്പൂർണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്നാഥ് സിംഗ് കേരളത്തെ പ്രളയ ദുരന്തത്തിലേക്ക് തള്ളിയിട്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റകരമായ നിലപാടുകൾ മൂലമാണെന്ന് കൊച്ചിയിൽ നടക്കുന്ന ബി ജെ പി സംസ്ഥാന കൌൺസിൽ യോഗത്തിൽഅവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയം കുറ്റപ്പെടുത്തി ഡാമുകൾ തുറക്കുന്നതിൽ ഉണ്ടായ വീഴ്ചയാണ് വലിയൊരു ദുരന്തത്തിലേക്ക് വഴി തെളിച്ചത് ഇതിനു കാരണക്കാരനായ മന്ത്രി എം എം മണിക്ക് എതിരെ അന്വേഷണം വേണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിന്റെ പുനർ നിർമാണത്തിന് എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടും വ്യാജ പ്രചാരണം നടത്തുകയാണ് ഗവൺമെന്റെന്നും പ്രമേയം കുറ്റപ്പെടുത്തി മുസ്തിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പള്ളി അവിഭാജ്യഘടകമാണോ എന്നകാര്യത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടിന് ചീഫ്ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വിധി പറയും

ദേശീയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിൽ നിന്ന് സംസ്ഥാനത്തെ ഭൂരിപക്ഷം ജനങ്ങളും പുറത്താകുമെന്ന് ആശങ്കപ്പെടുന്ന തായി മന്ത്രി കെ

ശൈലജ പറഞ്ഞു പദ്ധതിയിൽ ചേർന്നാൽ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സാധാരണ ക്കാർക്കും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഷൂറൻ സ് പദ്ധതിയുടെ പ്രയോജനം നഷ്ടമാകുമെന്ന് അവർ തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇതനുസരിച്ച് സംസ്ഥാനത്തെ പതിനെട്ടര ലക്ഷം കുടുംബങ്ങൾ മാത്രമാണ് പദ്ധതിയിൽ വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ബഹുഭൂരിപക്ഷം ജനങ്ങളും പുറത്താകുമെന്നതിനാൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്രആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ചകൾ തുടരുകയാണെന്ന് ശൈലജ വ്യക്തമാക്കി

തിരുവനന്തപുരത്ത് കെപിസിസി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ ഇപ്പോഴത്തെ അധ്യക്ഷൻ എം

ഹസ്സനിൽ നിന്ന് അദ്ദേഹം അധികാരമേറ്റെടുത്തു

വർക്കിംഗ് പ്രസിഡന്റുമാരായി കെ സുധാകരൻ എം

ഷാനവാസ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും യുഡിഎഫ് കൺവീനറായി ബെന്നി ബഹനാനും കെപിസിസി പ്രചാരണ വിഭാഗം ചെയർമാനായി കെ

മദ്യലഭ്യത വർധിപ്പിക്കുന്ന നിലയിൽ പുതിയ ബ്രൂവറികളും ഡിസ്റ്റിലറികളും തുടങ്ങാനും നിലവിലെ ഡിസ്റ്റിലറികളുടെ ഉത്പാദനശേഷി വർധിപ്പിക്കാനും അനുവദിച്ച ഗവൺമെന്റ് നടപടി കടുത്ത ജനവഞ്ചന യാണെന്ന് കോൺഗ്രസ് നേതാവ് വിഎം സുധീരൻ പറഞ്ഞു നാടാകെ മദൃശാലകൾ തുറന്ന് മദ്യവ്യാപനം നടത്തി വരുന്ന ഗവൺമെന്റ് നടപടികളുടെ തുടർച്ചയാണ് ഇതെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി

ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിലെ നയത്തിന് വിരുദ്ധമായി ബ്രൂവറികളും ഡിസ്റ്റിലറിയും അനുവദിച്ച് മദ്യപ്രളയത്തിൽ മുക്കിയാണോ നവകേരള സൃഷ്ടി നടത്തുന്നതെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണമെന്ന് മുൻമന്ത്രി കെ ബാബു ആവശ്യപ്പെട്ടു ഈ രഹസ്യ ഇടപാടിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

എഫ് ഏകോപന സമിതിയോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും പുതിയ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാനെ ഘടകകക്ഷികൾക്ക് ഔദ്യോഗികമായി പരിചയപ്പെടുത്താനാണ് യോഗം

ഡി എഫിലെ കോൺഗ്രസ് പ്രതിനിധികളിൽ മാറ്റം വരുത്തുന്നകാര്യം യോഗം ചർച്ചചെയ്യും

നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മറ്റിയും യോഗം ചേരും

കെ ശശി എം

എ ക്കെതിരായ ലൈംഗിക പീഡന പരാതിയിലെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും കന്യാസ്ത്രീ നൽകിയ പീഡന പരാതിയിൽ അറസ്റ്റിലായ ജലന്തർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ജാമ്യപേക്ഷ ഹൈക്കോടതി അടുത്ത ബുധനാഴ്ച വിധി പറയാൻ മാറ്റി കന്യാസ്ത്രീ നൽകിയ പരാതി വ്യാജമാണെന്ന് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ജമ്മുകശ്മീരിലെ മൂന്ന് ജില്ലകളിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു ഒരു തീവ്രവാദിയും നാട്ടുകാരനും കൊല്ലപ്പെട്ടു

അനന്ത്നാഗ് ജില്ലയിലെ ദുരുവിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് സൈനികനും ഭീകരനും മരിച്ചത് ശ്രീനഗറിലെ പ്രാന്തപ്രദേശമായ നൂർബാഗിലാണ് നാട്ടുകാരൻ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ കശ്മീർ താഴ്വരയിൽ ട്രെയിൻ സർവീസ് നിർത്തിവെച്ചു ഇന്ധനവിലയിൽ ഇന്നും വർധന

തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര അസ്ത്ര മിസൈലിന്റെ അവസാന പരീക്ഷണവും വ്യോമസേന വിജയകരമായി നിർവഹിച്ചു

ദുബായിൽ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും

കേരള തീരത്ത് ഇന്ന് വേലിയേറ്റ സമയങ്ങളിൽ ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് മുന്നറിയിപ്പ് നൽകി രാവിലെയും വൈകീട്ടും ആറു മുതൽ എട്ടു വരെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തീരമേഖലയിൽ ഇത്തരം തിരകൾക്ക് സാധ്യതയുണ്ട്

കടൽതീരത്ത് എത്തുന്ന വിനോദ സഞ്ചാരികളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട് ഇൌ സമയങ്ങളിൽ ബോട്ടുകളും വള്ളങ്ങളും കടലിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ആവശ്യപ്പെട്ടു കേന്ദ്ര കാലാവസ്ഥാനിരീക്ഷണ വകുപ്പ് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലും നാളെ കോഴിക്കോട് പാലക്കാട് വയനാട് ഇടുക്കി എറണാകുളം ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു

സംസ്ഥാനത്ത് പ്രളയക്കെടുതിയിൽപ്പെട്ടഅയൽക്കൂട്ട അംഗങ്ങൾക്ക് കുടുംബശ്രീ നൽകുന്ന വായ്പാ പദ്ധതിയ്ക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി ഒരു അംഗത്തിന് ഒരു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുന്നതാണ് പദ്ധതി

പേരാമംഗലത്ത് ലോറിയിടിച്ച് പേരാമംഗലം സ്വദേശി മേരിയാണ് മരിച്ചത്

ആമ്പല്ലൂർ വെണ്ടോർ കനാൽ പാലത്തിന് സമീപം വൃദ്ധയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി വെണ്ടോർ സ്വദേശി അന്നയാണ് മരിച്ചത്

ഹോസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ ഡോ ഡി സജിത് ബാബു ആണ് പട്ടയം വിതരണം ചെയ്തത്